ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട ത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു വോട്ടെടുപ്പ് തിങ്കളാഴ്ച

ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തുണ്ടായ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപപ്പെട്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

ശ്രീലങ്കയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ഒളിത്താവളത്തിലുണ്ടായ തെരച്ചിലിൽ ആറ് ഭീകരർ കൊല്ലപ്പെട്ടു

നാളെ നിശബ്ദ പ്രചാരണമാണ്

ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി അല്ല പോരാടുന്നത് മറിച്ച് ജനങ്ങളാണ് പാർട്ടിയുടെ പ്രചാരണത്തിനായി പോരാടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ കനൌജിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പറഞ്ഞു ഭീകരവാദത്തിനെതിരെ പോരാടാൻ എസ് പി ബി

കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് യാതൊരു പദ്ധതിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തിന്റെ ഫാക്ടറികൾ പാകിസ്ഥാനിലാണെങ്കിലും ലക്ഷ്യം ഇന്ത്യയാണെന്നും ദേശീയ സുരക്ഷയ്ക്കായി തന്റെ പാർട്ടി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു ഹർദോയിലെ പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തു ഝാർഖണ്ഡിലെ പലമുവിൽ നടന്ന റാലിയിൽ ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷാ പങ്കെടുത്തു

മയൂർ ഗഞ്ച് ജില്ലയിലെ മൊറാദ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഗവണ്മെന്റ് ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കാത്തതിലൂടെ പാവപ്പെട്ടവർക്ക് സൌജന്യ ചികിത്സ നിഷേധിക്കുകയാണ് ഒഡീഷയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി ഗവണ്മെന്റ് നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഡൽഹിയിലെ ജംഗിപുര മേഖലയിൽ അനുവാദം കൂടാതെ പൊതുയോഗം സംഘടിപ്പിച്ചതിനാലാണിത് ഈസ്റ്റ് ഡൽഹി മുഖ്യതെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കെ മഹേഷാണ് പൊലീസിന്റ് നിർദ്ദേശം നല്കിയത്

സംസ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും മെഹ്ബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ളപിഡിപി മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ കഴിഞ്ഞ വർഷം ബിജെപി പിൻവലിച്ചിരുന്നു സഖ്യ ഗവണ്മെന്റ് തകർന്നതു മുതൽ സംസ്ഥാനം പ്രസിഡന്റ് ഭരണത്തിന് കീഴിലാണ്

സി പി ഉൾപ്പെടെയുള്ള അഞ്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇലക്ഷനെ കമ്മീഷൻ കണ്ടു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ താമര ചിഹ്നത്തിന് താഴെയായി ബിജെപി എന്ന് എഴുതിയിട്ടുള്ളതായി അവർ പരാതി ഉന്നയിച്ചു ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരം ഇ വി

സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും സംഘം ആവശ്യപ്പെട്ടു

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വിയാണ് ഇൌ ആരോപണം ഉന്നയിച്ചത് തന്റെ പാർട്ടി ഉന്നയിച്ച പരാതിയിന്മേൽ തെരഞ്ഞെടൂപ്പ് കമ്മീഷൻ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലായെന്നും പരാതികൾ പരിഹരിക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് നിയമനടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പൊലീസ്സ് നടപടി മാധൃമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്

എയർഇന്ത്യയുടെ പാസഞ്ചർ സർവ്വീസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇന്ന് രാവിലെ ആറു മണിക്കൂറോളം തടസ്സ്പ്പെട്ടിരുന്നു

പുനഃക്രമീകരിച്ച സർവ്വീസുകളെ കുറിച്ച് യാത്രക്കാർക്ക് വിവരങ്ങൾ നല്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എയർലൈൻ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാറ് ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയത്

വേനൽക്കാല പ്രതിഭാസമായ ഇതിന് ഫാനി എന്നാണ് പേരു നല്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്ച്രം

നാളെ തീവ്രമാകുന്ന ചുഴലിക്കാറ്റ് തിങ്കളാഴ്ച രാത്രിയോടെ അതിതീവ്രമാകുമെന്നും കാലാവസ്ഥനിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഇവിടെയെല്ലാം മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കേരളത്തിലും കനത്തമഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കർശനമായ നിർദ്ദേശവുമുണ്ട്

ഇന്ന് രാവിലെ ജില്ലാ പൊലീസ് കമാൻപ്പോക്കൾ നടത്തിയ നക്സൽ വിരുദ്ധ നടപടിയെ തുടർന്നൂണ്ട് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു

ബന്ധമുള്ള ആറ് ഭീകരർ കൊല്ലപ്പെട്ടു രണ്ടു പേർ വെടിവെയ്പ്പിനിടയിലും നാല് പേർ ഒളി സങ്കേതത്തിൽ സൈനൃം നടത്തിയ സ്ഫോടനത്തിലുമാണ് കൊല്ലപ്പെട്ടത്

സമന്തുറൈ മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ ഒരു വീട്ടിൽ നിന്നും സ്ഫോടകവസ്തുക്കൾ ഐ

പതാകകൾ സൈനിക യൂണിഫോമുകൾ ചാവേർ ആക്രമണത്തിനുള്ള കിറ്റുകൾ എന്നിവ പിടിച്ചെടുത്തു ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്നു സംശയിക്കുന്ന ഇരുപതുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗവണ്മെന്റ് അറിയിച്ചു

ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവർക്കായുള്ള തെരച്ചിൽ തുടരുമെന്നും പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അറിയിച്ചു

ജയ്പൂരിൽ രാത്രി എട്ടുമണിക്കാണ് മത്സരം

ഡൽഹി ക്യാപിറ്റൽസാണ് മൂന്നാം സ്ഥാനത്ത്